നടത്തിയ ചർച്ച പരാജയപ്പെട്ടു സമര മുന്നറിയിപ്പുമായി നഴ്സസ് അസോസിയേഷൻ

കേസെടുക്കാൻ ഹൈക്ട്രോടതി ്നിർദ്ദേശം

നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നഴ്സസ് സമരം സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വകാര്യ നഴ്സുമാരുമായി ലേ ബർ കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ചേർത്തല കെവിഎം ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർ പ്പാക്കുന്നതിന്റെ ഭാഗമായി മാനേജുമെന്റിനെ കൂടി സഹകരിപ്പി ച്ചായിരുന്നു ചർച്ച

നഴ്സുമാർക്കെതിരായ അച്ചടക്കനടപടി ിൻവലിക്കാനാകില്ലെന്ന് മാനേജ്മെൻറ് വ്യക്തമാക്കിയതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്

ട്ടടടടടടടടടടടടടടടട ഹൈക്കോടതി അനധികൃത ഭൂമി ഇടപാട് കേസിൽ സ്ട്രീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരിക്കെതിരെ കേസെടുത്ത് ് അന്വേഷണം നടത്താൻ പൊലീസിന് ഹൈക്കോടതി ഉത്തര്പ് നൽകി

്രഇക്കാരൃത്തിൽ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടത്താൻ പൊലീസിന് തടസ്സങ്ങളില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞും പ്രീഷയത്തിൽ പൊലീസ് അന്വേഷണം വേണ്ടെന്നുകർദ്ദിനാളിന്റെ വാദം ഹൈക്കോടതി തള്ളി രാജ്യത്തെ നിയ്മങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് കർദിനാളിന് പുറമേ മറ്റ് മൂന്നുപേർക്ക് എതിരെ കൂടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് രാജ്യത്തെ കുറ്റകൃത്യത്തിന് കാനോൻ നിയമത്തിന് പ്രസക്തിയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു

കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആറുലക്ഷം രൂപയിലധികം വരുമാനമുള്ളവർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്ക രുത് വരുമാനം കണക്കാക്കുന്നതിൽ ശമ്പളവും കാർഷികആദാ യവും പരിഗണിക്കാൻ പാടില്ലെന്നും നിർദേശമുണ്ട്

എൻ

സായുധ സേനയിൽ കേണൽ തൃസ്തികയിൽ കുറയാത്ത പദവി വഹിക്കുന്നവർ ഭൂവുടമ്കൾഅഞ്ച് ഹെക്ടറിൽ കുറയാത്ത ജലസേചനമുള്ള ഭൂമിയുള്ളവർ തോട്ടം ഉടമകൾ എന്നിവരെയും ക്രീമിലെയർ ആയി കണക്കാക്കി സംവരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ ഏതു ക്ലാസിൽ സർവീസിൽ പ്രവേശിച്ചു എന്നതാണ് ക്രീമിലെയർ ആയി കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡം

നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകുന്നതിനു മുമ്പ് അപേക്ഷകർ ഇക്കാര്യങ്ങൾ വൃക്തമായി മനസ്സിലാക്കിയിരിക്കണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചു

ഓട്ടോറിക്ഷയുടെ മുകളിലേക്കു കണ്ടെയ്നർ ലോറി മറിഞ്ഞാണ് അപകടം ഓട്ടോയിലുള്ളവരാണു മരിച്ചത് ഇന്ന് വൈകിട്ട് നടന്ന അപകട ത്തിന്റെ വിശദാംശങ്ങൾ അറിവായിട്ടില്ല

മണിയുടെ മ രണത്തിലെ ദൂരൂഹത സ്റ്റ്ബ്ന്ധിച്ച സിബിഐ അന്വേഷണ വും നടന്നുവരികയാണ്

മണിയുടെ വാക്കുകൾ പോലെ തന്നെ മരണം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് തുടക്കമിട്ടത് മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിൽ വീട്ടുകാർ ഇപ്പോഴും ഉറച്ചുനിൽക്കുകയാണ്

അദ്ദേഹത്തിന്റെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ വിവിധ പരിപാടികളാണ് ചാലക്കുടിയിൽ ഒരുക്കിയത്

ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സദ്ദ്വീാര പോലീസ് പോലുള്ള ദുഷ്പ്രവണതകൾ സംസ്ഥാനത്ത് പ്പർദ്ധിച്ചുവരികയാണെന്നും ഇത്തരം പരാതികൾ കണ്ടില്ല്ലെന്ന് നടിക്കാനാവില്ലെന്നും ഒരു സ്വകാര്യ ഹർജി പരിഗണ്ടിക്ക്പ്പെ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി

എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്ന് യുഡിഎഫിന് ഭരണം നഷ്ടമായി

ഡി എഫ് വിട്ട ജെ

യു ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്

വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ് ഈ തീരുമാനം വിശദവിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

പിയും നടത്തുന്ന വ്യാപക അക്രമങ്ങളിൽ എൽ

എഫ് കൺവീനർ വൈക്കം വിശ്വനും സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പ്രതിഷേധം രേഖപ്പെടുത്തി നാളെ വൈകുന്നേരം സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും എൽ

ദേശീയതലത്തിലും ഇടതുപക്ഷ പാർടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധപരിപാടി കൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ബി ഐ കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി

തോമസ് കോട്ടൂർ ഫാ ജോസ് പുതൃക്കയിൽ സിസ്റ്റർ സെഫി എന്നിവരുടെ ഹർജികളിലാണ് വിധി പറയുക

ഒന്നരമാസം റിമാൻഡിൽ കഴിഞ്ഞ ഇവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവ ദിച്ചിരുന്നു

ചടങ്ങിൽ സ്ഥാർസ്കാരിക വകുപ്പ് മന്ത്രി എ

ബാലൻ അധ്യക്ഷത വഹിക്കും